വിട്ട് നൽകണമെന്ന് സുപ്രീംകോടതി മസ്ജിദ് നിർമ്മാണത്തിനായി സുന്നി വഖഫ്പ് ബോർഡിന് തർക്കഭൂമിക്ക് പുറത്ത് അഞ്ച് ഏക്കർ നല്കണമെന്നും കോടതി വിധി

സേനാവിഭാഗങ്ങൾ രാജ്യമൊട്ടാകെ കനത്ത ജാഗ്രത പുലർത്തുന്നു ക്ട്രേള്ത്തിലും സുരക്ഷ ശക്തമാക്കി

നരേന്ദ്രമോദി നിർവഹിക്കുന്നു

മത്സരത്തിൽ ആതിഥേയരായ കേരളം ഇന്ന് തമിഴ്നാടിനെ നേരിടും

മസ്ജിദ് നിർമ്മാണത്തിനായി സുന്നി വഖാഫ് ബോർഡിന് തർക്കഭൂമിക്ക് പുറത്ത് അയോധ്യയിൽ തന്നെ അഞ്ച് ഏക്കർ ഭൂമി നല്കണമെന്നും കോടതി വിധിച്ചു തർക്കപ്രദേശം കേന്ദ്രഗവൺമെന്റ് രൂപീകരിക്കുന്ന ട്രസ്റ്റിന് കൈമാറണം മൂന്ന് മാസത്തിനുള്ളിൽ ട്രസ്റ്റ് രൂപീകരിക്കണം ഈ ട്രസ്റ്റിനായിരിക്കും തർക്കപ്രദേശത്ത് ക്ഷേത്രം നിർമ്മിക്കാനുള്ള ചുമതലയെന്നും കോടതി ട്രസ്റ്റിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രഗവൺമെന്റിന് തീരുമാനിക്കാം

നിർമോഹി അഖാഡ റാം ലല്ല സുന്നി വഖഫ് ബോർഡ് തുടങ്ങിയ കക്ഷികളാണ് സുപ്രീംകോടതിയെ ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ എസ്

വൈ ചന്ദ്രചൂഢ് അശോക് ഭൂഷൺ അബ്ദുൾ നസീർ എന്നിവരും ഉൾപ്പെടുന്ന ബഞ്ച് ഏക കണ്ഠ്യേനയാണ് വിധി പ്രസ്താവിച്ചത് അയോധ്യ സുരക്ഷ അയോധ്യ കേസിന്റെ വിധിയുടെ പശ്ചാത്തലത്തിൽ സേനാവിഭാഗങ്ങൾ രാജ്യമൊട്ടാകെ കനത്ത ജാഗ്രത പുലർത്തുന്നു

അയോധ്യയിൽ ഡിസംബർ അവസാനം വരെ നിരോധനാജ്ഞയും ഏർപ്പെടുത്തി കേരളത്തിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് മതസ്പർധയും സാമുദായിക സംഘർഷങ്ങളും വളർത്തുന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ സന്ദേശങ്ങൾ തയാറാക്കി സാമൂഹ്യ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കും

രാവിലെ ഗുർദാസ്പൂരിലെത്തിയ അദ്ദേഹം സുൽത്താൻപൂർ ലോധിയിലുള്ള ബീർസാഹിബ് ഗുരുദാരയിൽ പ്രണാമം അർപ്പിച്ചു

മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിങ് പഞ്ചാബ് മുഖ്യമന്ത്രി അമരേന്ദർ സിങ് കേന്ദ്രമന്ത്രി ഹർസിമ്രത് കൌർ ബാദൽ എം പി മാർ പഞ്ചാബിൽ നിന്നുള്ള എം

എ മാർ തുടങ്ങിയവർ ആദ്യ സംഘത്തിൽ ഉൾപ്പെടുന്നു

വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

കണ്ണൂർ വിമാനത്താവളത്തിന്റെ മാതൃകയിലാണിത് നിർമ്മിക്കാനുദ്ദേശിക്കുന്നത് ലൂയിസ് ബർഗർ കൺസൾട്ടിങ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെയാണ് കൺസൾട്ടൻസി ഏജൻസിയായി നിയമിച്ചിട്ടുള്ളത് ഇവരുടെ പഠനറിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു

പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ കുട്ടികളെയും വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാക്കേജ് നടപ്പാക്കുന്നത്

അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊല്ലം കോർപറേഷൻ പൂർത്തീകരിച്ച ടി

വർഗീസ് സ്മാരക പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ലൈബ്രറി നവീകരണം മാനവീയം പ്രൊജക്ട് ചരിത്ര മ്യൂസിയം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു

തുടർന്ന് വിദ്യാർത്ഥികളുടേയും അദ്ധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്കൂളുകളുടെ പരിസരങ്ങളിൽ കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി

ദുരത്തിവാരണ നിയമ പ്രകാരം ഉത്തരവ് നടപ്പിലാക്കാൻ കൊച്ചി ക്കോർപ്പറേഷൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി

സംസ്ഥാനത്തെ വള്ളം കളികളെ കോർത്തിണക്കി തയ്യാറാക്കിയിട്ടുള്ള ചാമ്പ്യൻസ് ബോട്ടു ലീഗിന്റെ പത്താം മത്സരമാണിത് വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ

മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസൻ എം

സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകൻ സർവീസ് ബുക്കിലെ വിവരങ്ങൾക്കായി നൽകിയ അപേക്ഷയിൽ അപേക്ഷകന്റെ ജനനദിവസവും സർവീസിൽ പ്രവേശിച്ച ദിവസവും ഒരേ തീയതിയെന്ന് മറുപടി നൽകിയ പശ്ചാത്തലത്തിലാണ് വിവരാവകാശ പ്ര കമ്മിഷൻ കൂടുതൽ ശ്രദ്ധവേണമെന്ന് ചൂണ്ടിക്കാട്ടിയത്

വി സ്കൂളിന്റെ മികവിൽ ഈരാറ്റുപേട്ട ഉപജില്ല മുന്നേറ്റം തുടരുന്നു

എം

വാഹനാപകടം കിളിമാനൂരിന് സമീപം പുലർച്ചെ ഉണ്ടായ വാഹനാപകടത്തിൽ നടനും നാടക ചലച്ചിത്ര പ്രവർത്തനും മാധ്യമപ്രവർത്തകനുമായിരുന്ന ജോസ് തോമസ് മരിച്ചു

ഉണ്ണിക്കുട്ടുന്ന് ജോലി കിട്ടി ദയ തുടങ്ങി നിരവധി സിനിമകളിലും ടെലിഫീലീമുക്ളിലും അഭിനയിച്ചിട്ടുണ്ട്

നിലവിൽ ഓരോ മത്സരം വിജയിച്ച ഇരു ടീമുകൾക്കും ഇന്ന് നിർണായകമാണ് മൂന്ന് പോയിന്റാണുള്ളതെങ്കിലും ഗോൾ ശരാശരിയിൽ കേരളമാണ് മുന്നിട്ട് നിൽക്കുന്നത്

ഇന്നലെ തെലങ്കാനയെ പരാജയപ്പെടുത്തി കർണാടക യോഗ്യത നേടിയിരുന്നു

വൈകീട്ട് അഞ്ച് മണിക്ക് മന്ത്രി കെ ടി ജലീൽ മത്സരം ഉദ്ഘാടനം ചെയ്യും